റഫാൽ ഇടപാടിൽ അന്വേഷിണ്ട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച എല്ലാ ഹർജികളും സുപ്പ്രീംക്കോടതി തള്ളി ്ട് ശബരിമലയിൽ ഭക്തൂർക്ക് പ്രയാസമുണ്ടാക്കുന്ന നിയന്ത്രണങ്ങൾ ലഘൂകരിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശിക്മീഷൻ

ഓൺലൈൻ വഴി കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനും കേരള പോലീസ് പ്രത്യേക സംഘത്തിന് രൂപം നൽകി

രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഡൽഹിക്കെതിരെ കേരളത്തിന് ബാറ്റിംഗ് തകർച്ചു

ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയൻ മുന്നേറ്റത്തെ പ്രതിരോധിച്ച് ഇന്തൃ

ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് തീരുമാനം അറിയിച്ചത് പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി ഇരുവരും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം പ്രഖ്യാപിച്ചത്

ഗുണനിലവാരത്തിലും ഇടപാടിലും കരാറിലും സംശയമില്ലെന്നും വിമാനത്തിന്റെ വിലയിൽ വിശദമായ പരിശോധന നടത്തേണ്ട സാഹചര്യമുണ്ടെന്ന് കരുതുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി പ്രതിരോധ ഇടപാടുകളിൽ കോടതി പരിശോധനയ്ക്ക് പരിധിയുണ്ടെന്ന് വൃക്തമാക്കി മൂന്നംഗ ബഞ്ച് ഐകകണ്ഠേനയാണ് തീരുമാനം കൈക്കൊണ്ടത്

ഈ നിയമം ലംഘിക്കുന്ന വാഹന ഉടമകളിൽ നി ന്ന് പിഴ ഈടാക്കാനും വാഹനങ്ങളിൽ നിന്ന് ഇത്തരം ഫി ലിമുകൾ നീക്കം ചെയ്യാനും പൊലീസിന് നിർദ്ദേശം നൽ കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു വാഹനങ്ങളിൽ ക്രാഷ് ഗാർഡുകൾ ബുൾ ബാറുകൾ എന്നിവ ഘടിപ്പിക്കുന്നതും പിഴ ചുമത്താവുന്ന കുറ്റകൃത്യ മാണെന്നും ശ്രീ

ദേശീയ പാതകളിലെ തടസ്സമില്ലാത്ത ഗതാഗതം ഉറപ്പുവരു ത്തുന്നതിന് ഗവൺമെന്റ് ദേശ്രീയ ഇലക്ട്രോണിക് ടോൾ പിരിവ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്

നടപ്പന്തലിൽ വിരിവ യ്ക്കാനും വിശ്രമിക്കാനുമുള്ള അവസരം തുടരേണ്ടതാണ്

മോഹൻകുമാറും പി

ജിയും സൈബർ ഡോം നോഡൽ ഓഫീസറുമായ മനോജ് എബ്രഹാമിനാണ് സ്പെഷ്യൽ ടീമിന്റെ ചുമതല കേരള പോലീസ് ചൈൽഡ് പ്രൊട്ടക്ഷൻ നോഡൽ ഓഫീസറായ ക്രൈം ബ്രാഞ്ച് ഐ ജി എസ് ശ്രീജിത്തിന്റെ നേരിട്ടുളള മേൽനോട്ടത്തിലാവും പ്രത്യേക സംഘത്തിന്റെ പ്രവർത്തനം ഓൺലൈൻ വഴി കുട്ടികൾക്കെതിരെ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഡിജിറ്റൽ സംവിധാനം സജ്ജീകരിക്കുക ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുട്ടികളെ ചൂഷണം ചെയ്യുന്നത് കണ്ടെത്തുന്നതിനായി സൈബർ പട്രോളിംഗ് നടത്തുക അത്തരത്തിലുണ്ടാകുന്ന ചൂഷണം തടയുക അത്തരം സൈബർ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ നിയമനടപടികൾ കൈക്കൊളളുക കുട്ടികൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങളെ പറ്റി മാതാപിതാക്കൾ അധ്യാപകർ കുട്ടികൾ സന്നദ്ധപ്രവർത്തകർ എന്നിവർക്ക് ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക എന്നിവയാണ് സംഘത്തിൻറെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ ന്യൂസ് ഡെസ്ക് ആകാശവാണി

മറ്റ് നോവലിസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രചനാ ശൈലിയാണ് ശ്രീ ഘോഷ് പിന്തുടരുന്നത് എന്നും ചരിത്ര സംഭവങ്ങളെ സമകാലിക വിഷയങ്ങളുമായി ഇഴചേർത്തുള്ള അഖ്യാന പ്രത്യേകതയെന്നും പുരസ്ക്കാര നിർണ്ണയ സമിതി വിലയിരുത്തി

കൊൽക്കത്ത സ്വദേശിയായ അദ്ദേഹത്തിന് രാജ്യൂ പ്രത്മശ്രീ പുരസ്ക്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്

ഇക്കാര്യത്തിൽ എല്ലാ വകുപ്പുകളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വനിതാ മതിലിനെതിരെ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം വനിതാ മതിലിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നത് വ്യക്തിപരമായ തീരുമാനമാണെന്നും കോടതി പറഞ്ഞു കേസ് അടുത്ത വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും

കണ്ണൂരിന്റെ വ്യാവസായിക വാണിജ്യ പുരോഗതിക്ക് ഇത് വഴിതുറക്കുമെന്നാണ് പ്രതീക്ഷ

മിക്കയിടങ്ങളിലും കെഎസ്ആർടിസി ബസ്സുകൾ സർവ്വീസ് നടത്തിയില്ല

കെഎസ്ആർടിസി ബസ്സുകൾ മിക്കയിടത്തും സർവ്വീസ് നടത്തിയില്ല

പത്തനംതിട്ടയിൽ ഹർത്താൽ സമാധാനപരം കെഎസ്ആർടിസി പമ്പ സർവ്വീസ് നടത്തി സ്വകാര്യ ബസ്റ്റുകൾ ഓടിയില്ല

ആലപ്പുഴയിൽ ഇരുച്ക്രവ്ഫനങ്ങളും ഏതാനും സ്ഥകാര്യ വാഹനങ്ങളും മാത്രമാണ് നിരത്തിലിറങ്ങിയത്

കൊച്ചി മെട്രോ റെയിൽ സർവ്വീസ് നടത്തി ജില്ലയിൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

തോട്ടം തൊഴിലാളികൾ ജോലിക്കിറങ്ങിയില്ല ഇരുചക്രവാഹനങ്ങൾ ഒഴികെ മറ്റ് വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മൂന്നാർ തേക്കടി വാഗമൺ എന്നിവിടങ്ങളിൽ വിനോദസഞ്ചാരികൾ എത്തിയില്ല

സ്വകാര്യ വാഹനങ്ങൾ ഓടിയെങ്കിലും പൊതു വാഹനങ്ങൾ സർവ്വീസ് നടത്തിയില്ല

നെയ്യാറ്റിൻകര കരുനാഗപ്പള്ളി പത്തനാപുരം ചേർത്തല ദേവികുളം മൂവാറ്റുപുഴ വടക്കുംചേരി പേരാമ്പ്ര കൂത്തുപറമ്പ് കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് പുതുതായി ഓഫീസുകൾ ആരംഭിക്കുന്നത്

നേരത്തെ ടോസ് നേടിയ കേരളം ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു

നേരത്തെ ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു